കോൺഗ്രസ് സാധൃതാപട്ടികയുമായി നേതാക്കൾ ഇന്ന് ഡൽഹിയിലേക്ക് ബിജെപി സ്ഥാനാർഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമായേക്കും

വി വിഷ്ണു നമ്പൂതിരി അന്തരിച്ചു

രാഷ്ട്രപതി ഭവനിൽ ഏതാനും കുട്ടി കൾക്ക് അദ്ദേഹം പോളിയോ തുള്ളിമരുന്ന് നൽകി

ദേശീയ രോഗ പ്രതിരോധ പരിപാടിയിൽ റോട്ടവൈറസ് റുബെല്ല വാക്സിനുകളും ന്യൂമോകോക്കൽ വാക്സിനും അടുത്ത കാലത്ത് ഉൾപെടുത്തിയതായി ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു കുത്തിവെയ്പിലൂടെ നൽകാവുന്ന പോളിയോ വാക്സിൻ പ്രതി രോധ പരിപാടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതായും മന്ത്രി പറ ഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് വിവിധ ജില്ലകളിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് ആരം ഭിക്കും

ഇതിനായി ബസ്റ്റാന്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാൻസിറ്റ് ബൂത്തുകൾ ആരംഭിച്ച തായി ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ അറിയിച്ചു ബാലാകോട്ട് ഭീകരക്യാംപ് വ്യോമസേന തകർത്തതിന് പ്രതി പക്ഷം തെളിവ് ആവശ്യപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കുറ്റപ്പെടുത്തി

നോയിഡയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭീകരവാദം നേരിടാൻ പുതിയ പദ്ധതികളും നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചതായും ഉറി മിന്ന ലാക്രമണം ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നടപടി ഭീകരവാദികൾക്ക് ഒരു പാഠമായിരുന്നെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി

വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു ഈ ചാനലുകളെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറി ച്ചും ബീഡിത്തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൊഴിലാളി പ്രസ്ഥാന മുന്നേ റ്റത്തിലെ സവിശേഷമായ ഏടാണ് കേരള ദിനേശ് ബിഡിയുടേ തെന്നും സമൂഹത്തിലെ പ്രതിസ്ന്ധി ഘട്ടങ്ങളിലെല്ലാം ദിനേശ് തൊഴിലാളികൾ പങ്കാളികളായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അനുസ്മ രിച്ചു കേരള ദിനേശ് സുവർണ്ണ ജൂബിലി ആഘോഷം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മന്ത്രി ഇ പി ജയരാ ജൻ അധ്യക്ഷനായിരുന്നു കേരളത്തിൽ ഭവനനിർമാണ മേഖലയിലെ വിഭവ ചൂഷണം നി യന്ത്രിക്കാൻ നടപടികളെടുക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറി യിച്ചു

സം സ്ഥാന ഭവന നിർമാണ വകുപ്പ് കണ്ണൂർ ജില്ലാ നിർമിതി കേന്ദ്രയു ടെ സഹകരണത്തോടെ നവകേരളത്തിന് പുതിയ ഭവന സാക്ഷര ത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്ഥാനാർഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എൽഡിഎഫിന്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ ഇന്നാരംഭിക്കും പാല ക്കാട്ടാണ് ആദ്യ കൺവെൻഷൻ

ബി രാജേഷിന്റെ പ്രചാരണ കൺവെൻഷൻ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷനുകൾ നടക്കും മറ്റു കൺവെൻഷനുകൾ വ്യാഴാഴ്ചയോടെ പൂർത്തിയാ കും സ്ഥാനാർഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ സ്ഥാനാർഥികളുടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു നാളെ കണ്ണൂരിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗവും ചേരും കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധ്യ താ സ്ഥാനാർത്ഥി പട്ടികയുമായി പ്രതിപക്ഷിനേതാവും കെപിസിസി പ്രസിഡന്റും ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് ഡൽഹിക്ക് പോകും നാളെയും മറ്റന്നാളും ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഔദ്യോ ഗിക പ്രഖ്യാപനം ഏഴിടത്ത് ഒഴികെ ഒമ്പത് മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർഥികളുടെ മാത്രം പേര് പട്ടികയിൽ ഉൾപെടുത്താൻ ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ചർച്ചയിൽ തീരുമാനമായി ഇടുക്കി ചാലക്കുടിടതൃശൂർ പാലക്കാട് ആലത്തൂർ വയനാട് കാസർകോട് എന്നിവിടങ്ങളിൽ രണ്ടോ മൂന്നോ സ്ഥാനാർഥികളുടെ സാധ്യതാ പട്ടികയാണ് തയാറാക്കിയിരിക്കുന്നത് കേരള കോൺഗ്രസ് നേതൃ യോഗങ്ങൾ ഇന്ന് കോട്ടയത്ത് നട ക്കും രാവിലെ പാർലമെന്ററി പാർട്ടിയും ഉച്ച കഴിഞ്ഞ് പാർട്ടി സ്റ്റിയ റിഹ് കമ്മിറ്റിയും യോഗം ചേരും കേരള കോൺഗ്രസ് ഒരു സീറ്റ് മാത്രം നൽകിയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് യോഗങ്ങൾ ചേരുന്നത് സ്ഥാനാർഥിയുടെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ പാർട്ടി ചെയർമാൻ കെ എം മാണി അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്

മുതിർന്ന് നേതാക്കൾ മൂന്ന് മേഖല കളായി തിരിച്ച് പ്രവർത്തകർക്കിടയിൽ നടത്തിയ അഭിപ്രായ രൂപീ കരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക ഓരോ മണ്ഡലത്തിലും നാല് പേരുകൾ വീതം ഉൾപ്പെട്ട സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശ്രേഖരൻ തിരുവന ന്തപുരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്

ഡി എ ഘടകക ക്ഷിയായ ബിഡിജെഎസിന്റെ സ്ഥാനാർത്ഥി നിർണയവും നാളെ പൂർത്തിയായേക്കും ബിജെപിയുടെ പരിവർത്തന യാത്രകൾ ഇന്ന് പൂർത്തിയാകുന്ന തോടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനം സജീവമാക്കാനാണ് തീരുമാനം മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനസമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ നടക്കും

ഇന്ത്യ ആസ്ത്രേലിയ നാലാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് മൊഹാലിയിൽ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ട് മത്സര ങ്ങൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ് മത്സരം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തുടങ്ങും ഐലീഗ് ഫുട്ബോൾ കിരീടം ചെന്നൈ സിറ്റിക്ക് കോയമ്പത്തൂ രിലെ അവസാന വട്ട മത്സരത്തിൽ മിനർവ പഞ്ചാബിനെ ഒന്നിനെ തിരെ മൂന്ന് ഗോളിനാണ് ചെന്നൈ തോൽപിച്ചത്

കേരള ഫോക്ലോർ അക്കാദമി മുൻചെയർമാനും ഗവേഷകനു മായ ഡോ

വി വിഷ്ണുനമ്പൂതിരി അന്തരിച്ചു

സർവ വിജ്ഞാന കോശം ഉപദേശക സമിതി അംഗമായിരുന്ന അദ്ദേഹം ഫോക്ലോർ നിഘണ്ടുവും തയാറാക്കിയിട്ടുണ്ട് നിരവധി നാടൻപാട്ടുകളും തോറ്റം പാട്ടുകളും ശേഖരിച്ച് പ്രസിദ്ധീകരിക്കു കയും ചെയ്തു തെയ്യം തിറ അനുഷ്ടാന് കലകൾ എന്നിവയു മായി ബന്ധപ്പെട്ട് അറുപതിലേറെ കൃതികൾ വിഷ്ണു നമ്പൂതിരി രചിച്ചു

വിഷ്ണു നമ്പൂതിരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു പ്രിസം പദ്ധതിയിൽ പൂർണമായും നവീകരിച്ച കോഴിക്കോട് കാര പ്പറമ്പ് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ മുഖ്യമന്ത്രി പിണ റായി വിജയൻ നാടിന് സമർപ്പിച്ചു

മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകി വരികയാണെന്ന് മന്ത്രി ഇ

അപകടത്തിൽപെട്ട് നഷ്ടമായ ബോട്ടുകൾക്കും വള്ള ങ്ങൾക്കും വലകൾക്കും പകരം പുതിയത് ലഭ്യമാക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണെന്നും അദ്ദേഹം അറിയിച്ചു കാഞ്ഞങ്ങാട്ട് മത്സ്യ ത്തൊളിലാളി ക്ഷേമ ബോർഡിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി ആധുനിക സൌകര്യങ്ങൾ ലഭ്യമാക്കി അംഗൻവാടികളുടെ നില വാരം ഉയർത്തുമെന്ന് മന്ത്രി എ

പാലക്കാട് കണ്ണമ്പ്രയിലെ വാളുവെച്ചപാറ അംഗൻവാടി കെട്ടിട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ അംഗൻവാടികളിൽ സോഷ്യൽ ഓഡിറ്റ് മോണിറ്ററിങ് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഇടുക്കി ഗഞ്ചിയാറിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി എം എം മണി നിർവഹിച്ചു ജനോപകാര പ്രദമായ നാല് മിഷനുകൾ ഗവൺമെന്റ് വിജയകര മായി പൂർത്തിയാക്കി വരികയാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു പെരിയ കല്ല്യോട്ട് ഇരട്ടക്കൊലപാതകത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ നിരപരാധികളായ കോൺഗ്രസ് പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്ത്തായി ആരോപിച്ച് വീട്ടമ്മമാർ ബേക്കൽ പൊലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഉച്ചയ്ക്ക് ആരംഭിച്ച സമരം വൈകീട്ട് നേതാക്കൾ ഇടപ്പെട്ട ശേഷമാണ് അവസാനിച്ചത് പത്ത് ദിവസത്തെ ഉത്സവത്തിന് ശബരിമലയിൽ നാളെ വൈകീട്ട് നട തുറക്കും മറ്റന്നാൾ രാവിലെ ഉത്സവത്തിന് കൊടിയേറും

മഹാപ്രളയത്തിൽ പമ്പയിൽ അടിഞ്ഞുകൂടിയ മണൽ വനംവകുപ്പ് ലേലം ചെയ്യും തീർത്ഥാടനത്തിന് പമ്പയെ ഒരുക്കുന്നതിനായി നദി യിൽ നിന്നും വാരിയ മണൽ ഹിൽടോപ്പ് ചക്കുപാലം എന്നിവിട ങ്ങളിൽ ഇപ്പോൾ സംഭരിച്ചിരിക്കുകയാണ്

ചെട്ടികുളങ്ങര കുംഭഭരണി നാളെ കുത്തിയോട്ട സംഘങ്ങൾക്ക് ഇന്ന് വിശ്രമദിനമാണ്

നാളെ പുലർച്ചെ ഓണാട്ടുകരയിലെ വിവിധ ദേശങ്ങളിൽ നിന്ന് കുത്തിയോട്ട സംഘങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുട ങ്ങും

കാഞ്ഞിരവേലി കല്ലാർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്